മാവോയിസ്റ്റ് നേതാവ് സി പി ജലീലാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇത് പൊലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ആരും കസ്റ്റഡിയിലില്ലെന്നും പൊലീസ് പറഞ്ഞു സ്ഥിതിഗതികൾ വിലയിരുത്താൻ കണ്ണൂർ റേയ്ഞ്ച് ഐജി ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു

വിവരമറിഞ്ഞ് പൊലീസ് സ്ഥലത്തെ ത്തിയതോടെ മാവോയിസ്റ്റുകൾ അവർക്കുനേരെ വെടിവെ യ്ക്കുകയായിരുന്നുവെന്നാണ് പൊലീസ് നൽകുന്ന വിവരം ഏറ്റുമുട്ടൽ പുലർച്ചെവരെ നീണ്ടു റിസോർട്ടിന് സമീപമാണ് ജലീലിന്റേതെന്ന് കരുതുന്ന മൃതദേഹം കണ്ടെത്തിയത് സംഘത്തിലുണ്ടായിരുന്ന മറ്റു മാവോയിസ്റ്റുകൾ തൊട്ടടുത്ത കാട്ടിലേക്ക് രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് വിലയിരുത്തൽ മാവോയിസ്റ്റുകൾക്കുവേണ്ടി തെരച്ചിൽ ഊർജ്ജിതമാ ക്കി കാട്ടിലേക്ക് ചിതറിയോടിയ മാവോയിസ്റ്റുകളെ കണ്ടെ ത്താൻ തണ്ടർബോൾട്ടിന്റെ നേതൃത്വത്തിലാണ് പരിശോധന

കഴിഞ്ഞ മൂന്നു വർഷങ്ങളിൽ ജനറിക് മരുന്നുകളുടെ പ്രചാരം രണ്ടിൽ നിന്ന് ഏഴ് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഇക്കാര്യമറിയിച്ച കേന്ദ്രസഹമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ പറ ഞ്ഞു ലോക്പാൽ നിയമനത്തിന് തെരഞ്ഞെടുപ്പ് സമിതിക്ക് എപ്പോൾ യോഗം ചേരാനാവുമെന്ന് പത്തു ദിവസത്തിനകം അറിയിക്കാൻ സുപ്രീംകോടതി അറ്റോർണി ജനറലിനോട് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം എത്രയും വേഗം വിളിച്ചുചേർക്കാൻ ഡി ഒ പി ടി സെക്രട്ടറി യോട് ആവശ്യപ്പെടാമെന്ന് എ ജി സുപ്രീംകോടതിയെ അറി യിച്ചു ലോക്പാൽ അന്വേഷണസമിതി ശൂപാർശ ചെയ്ത മൂന്ന് പാനലുകളിലെ പേരുകൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കണ മെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു

ദിനാചരണപരിപാടി കളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യ മന്ത്രി നിർവഹിക്കും ഐ സി ഡി എസ് പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിക്കും

വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വനിത കളെ ചടങ്ങിൽ ആദരിക്കും ലോക്സഭാ സ്ഥാനാർത്ഥിപട്ടികയ്ക്ക് അന്തിമരൂപം നൽകാൻ സി പി ഐ എം സംസ്ഥാനസെക്രട്ടേറിയറ്റ് തിരു വനന്തപുരത്ത് എ കെ ജി സെന്ററിൽ യോഗം ആരംഭിച്ചു

ഇന്നും നാളെയുമായി ചേരുന്ന സംസ്ഥാന കമ്മറ്റി അംഗീകരിച്ചശേഷം മറ്റന്നാൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും

ഈ സീറ്റുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംസ്ഥാ നകമ്മറ്റി നേരത്തെ തീരുമനിച്ചിട്ടുണ്ട്

ഡൽഹിയൊഴികെ ചില സംസ്ഥാനങ്ങളിൽ ധാര ണയിലെത്തിയതായി അദ്ദേഹം ഡൽഹിയിൽ അറിയിച്ചു ബി ജെ പി ജനറൽ സെക്രട്ടറി എം ടി രമേശ് നയിക്കുന്ന പരിവർത്തനയാത്ര രാവിലെ തളിപ്പറമ്പിൽ നിന്ന് പുനഃരാ രംഭിച്ചു ഇന്ന് ശ്രീകണ്ഠപുരത്തെ സ്വീകരണത്തിനുശേഷം ഇരിക്കൂർ പേരാ വൂർ അഴീ ക്കോട് മട്ടന്നൂർ ധർമ്മടം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും വൈകീട്ട് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ ഇന്നത്തെ പര്യ ടനം സമാപിക്കും ജാഥ നാളെ കോഴിക്കോട് ജില്ലയിൽ പ്രവേ ശിക്കും

ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയക്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാ പിക്കു മെ ന്നി രിക്കെ വൈകാതെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അവസാന മന്ത്രിസഭായോഗ മാണ് ഇന്ന് ചേരുന്നത് സുപ്രധാന തീരുമാനങ്ങൾ യോഗ ത്തിലുണ്ടാകുമെന്നാണ് സൂചന

കഴിഞ്ഞ ഒൻപതു ദിവസങ്ങളായി അതിർത്തിയിൽ പാകിസ്ഥാൻ വ്യാപകമായി ഷെല്ലാക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ സ്ഥിതി വില യിരുത്താനാണ് രാജൃരക്ഷാമന്ത്രി അതിർത്തിപ്രദേശങ്ങൾ സന്ദർശിക്കാനിരുന്നത് സാംബ അഖ്നൂർ പ്രദേശങ്ങളിൽ രണ്ട് സുപ്രധാന പാലങ്ങളുടെ ഉദ്ഘാടനവും രാജ്യരക്ഷാ മന്ത്രി നിർവഹിക്കേണ്ടതായിരുന്നു

സൈന്യം അന്താരാഷ്ട്ര അതിർത്തിയിൽ അതീവ ജാഗ്രതയിലാണെന്നും സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണെന്നും വക്താവ് അറി യിച്ചു

പ്രദേശം വളഞ്ഞ സുരക്ഷാസേന കൂടുതൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്

രണ്ട് നിറത്തിലാകും നാണയം പുറ ത്തിറക്കുക

പ്രവാസി മലയാളികളിൽനിന്ന് സംസ്ഥാനത്തേയ്ക്ക് നിക്ഷേപം ആകർഷിക്കുകയാണ് സെന്റർ വഴി ലക്ഷ്യമിടുന്നത്

സംസ്ഥാനത്തൊ ട്ടാകെ നാലുലക്ഷത്തിലേറെപ്പേരാണ് ഇത്തവണയും പൊതു പരീക്ഷ എഴുതുന്നത്

ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സഹാ യത്തിനായി സൌകര്യങ്ങളൊരുക്കിയിട്ടുണ്ടെന്നും ഡി ഡി ഇ പറഞ്ഞു ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം നാളെ റാഞ്ചിയിൽ ആദ്യ രണ്ട് ഏകദിനങ്ങൾ ജയിച്ച ഇന്ത്യ മൂന്നാം മത്സരവും ജയിച്ച് അഞ്ച് മത്സര പരമ്പര സ്വന്തമാ ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുൻക്യാപ്റ്റൻ മഹേ ന്ദ്രസിംഗ് ധോണിയുടെ തട്ടകയമായ റാഞ്ചിയിൽ അദ്ദേഹ ത്തിന്റെ അവസാന മത്സരംകൂടിയാണ് നാളത്തേത്

ബർമ്മിംഗ്ഹാമിൽ വനിതാ സിംഗിൾസിൽ മുൻഫൈനൽ താരം സൈന സ്കോട്ട്ലെന്റ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് തോൽപ്പിച്ചത് പുരുഷ സിംഗിൾസിൽ ശ്രീകാന്ത് ഫ്രാൻസിന്റെ ബ്രൈസ് ലവേർഡസിനെ പരാജയപ്പെടുത്തി അടുത്ത റൌണ്ടിൽ സൈന ഡെൻമാർക്ക് താരത്തെയും ശ്രീകാന്ത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ജൊനാത്തൻ ക്രിസ്റ്റിയെയും നേരിടും

ഗുവാഹത്തിയിൽ ആദ്യപാദ സെമി യിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബെങ്കളൂരു എഫ് സിയെ നേരിടും

ഏറ്റുവും കുറവ് ഗോൾ വഴങ്ങിയ ടീമെന്ന നിലയിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ന് കളിക്കാനിറങ്ങറുന്നത് നാളെ മുംബൈ സിറ്റിയും ഗോവ എഫ് സിയും ഏറ്റുമു ട്ടും

വൈദ്യുതി രംഗവും പരിസ്ഥിതി സൌഹൃദമായി മാറുകയാണെന്ന് മന്ത്രി പറഞ്ഞു

കേസിന്റെ വിചാരണ വൈകിപ്പിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നതെന്തിനാ ണെന്ന് കോടതി ചോദിച്ചു കേസിൽ വനിതാജഡ്ജി വിചാ രണ നടത്തണമെന്ന ഇരയായ നടിയുടെ ആവശ്യം ഹൈക്കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു

കേസിൻരെ വിചാരണ ആറ് മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെയാണ് രണ്ടാം പ്രതി ഹർജി നൽകിയത് ഇടുക്കിയിൽ ജില്ലാതല ബാങ്കേഴ്സ് സമിതി യോഗത്തി നെത്തിയ മന്ത്രി വി എസ് സുനിൽകുമാറിനെതിരെ തൊടു പുഴയിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു പ്രവർത്തകരെ പൊലീസ് അറസ്റ്റ് ചെയ്തു നീക്കി

അക്കാദമി ഓഡി റ്റോറിയത്തിൽ മന്ത്രി എ കെ ബാലൻ ശനിയാഴ്ച രാവിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും കവി ആറ്റൂർ രവിവർമ്മയ്ക്ക് വിശിഷ്ടാംഗത്വവും ശ്രദ്ധേയരായ എഴുത്തുകാർക്ക് സമഗ്ര സംഭാവനാ പുരസ്കാരങ്ങളും സമ്മാനിക്കുന്ന ചടങ്ങിൽ മന്ത്രി വി എസ് സുനിൽകുമാർ മുഖ്യാതിഥിയായിരിക്കും

രാജേന്ദ്രനാണ് സസ്പെൻഷനിലായത്

പകൽ താപനില വർധിച്ച സാഹചര്യത്തിൽ മത്സ്യമേഖ ലയിലും തീരദേശത്തും പ്രവർത്തിക്കുന്നവർ ജോലിസമയം ക്കമീകരിക്കണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറ ക്ടർ അറിയിച്ചു

നാലരക്കോടി രൂപയുടെ പ്രവൃത്തികളാണ് നവീകരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ത് മൃതദേഹങ്ങൾ ദഹിപ്പിക്കാനായി ആധുനിക രീതിയിലു ളള മൂന്ന് ഗ്യാസ് ചേംബറുകൾ മരണാനന്തരചടങ്ങുകൾക്ക് സൌകര്യങ്ങൾ ഉദ്യാനം എന്നിവ പദ്ധതിയിൽപ്പെടും